പാക്കിസ്ഥാനിലെ ജയ്ഷെ ഭീകര ക്യാംപുകൾ തകർത്ത വ്യോമസേന ആക്രമണത്തെ സർവകക്ഷി യോഗം അഭിനന്ദിച്ചു

ഭീകരവാദി കൾ ഒളിച്ചിരിക്കുന്നുവെന്ന വിവർം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശം വളഞ്ഞിരിക്കുകയാണ് ഇന്നലെ വെടിനിർത്തൽ ലംഘിച്ച് പാക്കിസ്ഥാൻ സേന നിയന്ത്രണ രേഖയിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യൻ സേന പ്രത്യാ ക്രമണത്തിൽ അഞ്ച് പാക്കിസ്ഥാൻ പോസ്റ്റുകൾ തകർത്തു മോർട്ടാ റുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു പാക്കിസ്ഥാന്റെ ആക്രമണം ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ നിരവധി പാക്കിസ്ഥാൻ സേനാംഗങ്ങൾക്ക് പരുക്കേറ്റതായി റിപ്പോർട്ടുണ്ട് പാക് അധിനിവേശം കശ്മീരിലെ ജെയ്ഷേ മുഹമ്മദ് ഭീകര കേന്ദ്ര ങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ മിന്നലാക്രമണത്തിന്റെ സാഹച രൃത്തിൽ കര നാവിക വ്യോമ സേനാ മേധാവികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് രാജ്യത്തെ സ്വുരക്ഷാ സാഹചര്യം ധരിപ്പിച്ചു പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തിരിച്ചടിക്കുമെന്ന് പ്രതി കരിക്കുകയും പാക് സേനാ മേധാവികൾ ഉന്നതതല യോഗം നട ത്തുകയും ചെയ്തിരുന്നു പാക്കിസ്ഥാനിലെ ജയ്ഷെ ഭീകര കൃാംപുകൾ തകർത്ത ഇന്ത്യൻ വ്യോമസേനാ ആക്രമണത്തെ ന്യൂഡൽഹിയിൽ ചേർന്ന സർവ കക്ഷി യോഗം അഭിനന്ദിച്ചു രാജ്യത്തിനു നേരെ പുറമെ നിന്ന് ഉണ്ടാ വുന്ന ഭീകരത ഇല്ലായ്മ ചെയ്യാൻ സൈന്യം നടത്തുന്ന എല്ലാ നട പടികൾക്കും പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു കേന്ദ്ര മന്ത്രി സുഷമസ്വരാജ് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ യോഗ ത്തിൽ പങ്കെടുത്തവരെ അറിയിച്ചു കേന്ദ്ര മന്ത്രിമാരായ അരുൺ ജയ്റ്റ്ലി രാജ്നാഥ്സിങ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു

സി പി ബി

പി സിപിഐഎം തൃണമൂൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് ബി

ഡി തുടങ്ങിയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിനെത്തിയിരുന്നു

മത്സരയിനങ്ങൾ ഇന്നലെ സമാപിച്ചിരുന്നു തൊഴിലാളി ക്ഷേമത്തിലും തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കുന്ന തിലും കേരളം മാതൃകയാണെന്ന് ഗവർണർ പി സദാശിവം പറ ഞ്ഞു

പരിസ്ഥിതി സൌഹൃദ ഉൽപന്നങ്ങളുമായി കിലെ സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേള സ്വപ്ന നഗരിയിലെ ട്രേഡ് സെന്ററിൽ മന്ത്രി ടി പി രാമകൃ ഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങൾ ഇന്ന് സമാപിക്കും തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യ മന്ത്രി പിണറായിരുവിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മറ്റു ജില്ലകളിലും ആയിരം ദിനാഘോഷങ്ങൾ ഇന്ന് സമാ പിക്കും തിരുവനന്തപുരത്തെ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെ ടുത്ത പ്രസംഗങ്ങൾ ഉൾപെടുത്തിയ പുസ്തകം നവകേരളത്തിനാ യുള്ള നവോത്ഥാനം പ്രകാശനം ചെയ്യും

താക്കോൽദാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ ഭവനിൽ നിർവഹിച്ചു ഇതോടൊപ്പം മറ്റു ജില്ലകളിലെ താക്കോൽദാന ചടങ്ങുകൾ ലൈവ് സ്ട്രീമിങ്ങിലൂടെയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഏപ്രിലോടെ രണ്ടായിരം വീടുകളുടെ നിർമാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചട ങ്ങിൽ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണ് ഒരുവീടിന് ചെലവ് വന്ന ത് വീടില്ലാത്ത മുഴുവൻ പേർക്കും ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ വീട് നിർമിച്ചു നൽകാൻ ഗവൺമെന്റ് ശ്രമം നടത്തി വരിക യാണെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് അറിയിച്ചു വിവിധ പദ്ധതികളിൽ നിർമാണം പൂർത്തിയാകാത്ത അരലക്ഷം വീടുകൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയതായി മന്ത്രി പറഞ്ഞു അടുത്ത ഘട്ടങ്ങളിൽ സ്ഥലമുള്ളവർക്ക് പീടും സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് ഫ്ളാറ്റ് സമുച്ചയവും നിർമിക്കും കോഴിക്കോട് ജില്ല യിലെ ഫ്ളാറ്റ് നിർമാണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി വെളിപ്പെടുത്തി പത്തനംതിട്ടയിൽ മന്ത്രി കെ രാജുവും ഇടുക്കിയിൽ മന്ത്രി എം

കണ്ണൂരിൽ പി കെ ശ്രീമതി എം പിയും കൊല്ലത്ത് കോവൂർ കുഞ്ഞിമോൻ എം

എയും താക്കോലുകൾ കൈമാറി തിരുവനന്തപുരത്തെ ആധുനിക റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും വാഹൻസാരഥി സോഫ്റ്റ് വെയറും ഇന്ന് ഉദ്ഘാടനം ചെയ്യും മന്ദിരം മന്ത്രി എ കെ ശശീന്ദ്രനും സോഫ്റ്റ് വെയർ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ അഞ്ചാം നിലയിലാണ് ആധുനിക സൌകര്യങ്ങളോടെ ആർ ടി ഒ ഓഫീസ് തുടങ്ങുന്നത്

പത്ത് ലക്ഷം രൂപ ഓരോ ഫ്ളാറ്റിനും ചെലവ് വരും കശുവണ്ടി വികസന കോർപറേഷന്റെ സ്യൂവർണ ജൂബിലി ആ ഘോഷവും പുതിയ സമുച്ചയങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത്നിർവഹിച്ചു

അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ സർവ കലാശാലകളിലെയും പ്രവേശനം പരീക്ഷാ നടത്തിപ്പ് ഫലപ്രഖ്യാ പനം എന്നിവ ഏകീകരിക്കുമെന്ന് മന്ത്രി ഡോ

എഞ്ചിനിയറിങ്ങ് ഒഴികെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് സംസ്ഥാനത്തെ പ്രവേശന പരീക്ഷകൾ ഈ വർഷം മുതൽ ഓൺലൈനാക്കി മാറ്റും

ദേശീയ പണിമുടക്ക് ദിനങ്ങളിൽ ജോലിക്ക് എത്താതിരുന്ന ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളത്തോട്കൂടിയ അവധി നൽകിയ ഗവൺമെന്റ് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇത്തരമൊരു ഉത്തരവ് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കോ ടതി വിലയിരുത്തി ഗവൺമെന്റ് തീരുമാനത്തിനെതിരെ സ്ഥകാര്യ വൃക്തി നൽകിയഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ഇക്കാ രൃത്തിൽ കോടതി ഗവൺമെന്റിനോട് വിശദീകരണം തേടിയിട്ടു ണ്ട് പൊതുസ്ഥലങ്ങളിലെ അനധികൃത ഫ്ളക്സ് ബോർഡും കൊടി തോരണങ്ങളും ബാനറുകളും പത്തു ദിവസത്തിനകം മാറ്റണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇത് ചെയ്തില്ലെങ്കിൽ തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കും ഫീൽഡ് ജീവനക്കാർക്കുമെതിരെ നടപടിയെടു ക്കണമെന്ന് ഹൈക്കോടതി നിർദേശിച്ചു അനധികൃത ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ ശിക്ഷക്കു പുറമെ ക്രിമിനൽ കേസും എടുക്കണമെന്ന് കോടതി പറഞ്ഞു

രാത്രി ഏഴിന് കളി ആരം ഭിക്കും

ഇന്ത്യ ആസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശനിയാഴ്ച തുടക്കമാവും

പെരിയ ഇരട്ടക്കൊലപാതകങ്ങളുടെയും തുടർന്നുണ്ടായ അക്രമ സംവങ്ങളുടെയും സാഹചര്യത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഇന്നലെ കാസർകോട് വിളിച്ചുചേർത്ത സർവകക്ഷി സമാധാന യോഗം പരാ ജയപ്പെട്ടു സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കാതെ ഒരു ചർച്ചയ്ക്കും തയാറല്ലെന്ന് വ്യക്തമാക്കി യുഡിഎഫ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരുവനന്തപുരം ഉൾപ്പെടെ അഞ്ച് വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിന് ഏൽപ്പിക്കുന്ന കേന്ദ്രനീക്കം കോടികളുടെ അഴിമതിയാ ണെന്ന് കെ

സി

ജന താൽപര്യം മറികടന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കൈമാറ്റം നടക്കുന്നത് പ്രതിഷേധാർഹമാ ണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു കാസർകോട് ഇരട്ടക്കൊലപാതകത്തിൽ മുഖ്യപ്രതി പീതാംബരൻ കൊലപാതകം നടത്തിയിട്ടില്ലെന്നും പൊലീസ് മർദിച്ച് കുറ്റം സമ്മ തിപ്പിച്ചതാണെന്നും വെളിപ്പെടുത്തിയത് ആസൂത്രിത ഗൂഢാലോച നയുടെ ഫലമായാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സാഹച ര്യത്തിൽ സി ബി ഐ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനെയും കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് കൊടിക്കുന്നിൽ വ്യക്തമാക്കി ആലുവ ജില്ല ആശുപത്രിയിൽ നിർമാണം പൂർത്തിയാക്കിയ ആധു നിക ഓപ്പറേഷൻ തിയറ്റർ മന്ത്രി ഇ

അവയവം മാറ്റിവെക്കുന്നവർക്ക് ആവശ്യമായ മരുന്നുകൾ ഉൽപാദിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് രോഗികളിലെത്തിക്കാൻ ഗവൺമെന്റ് പദ്ധതിയിടുന്നതായി മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറ ഞ്ഞു മലപ്പുറം എടവണ്ണയിൽ ബസ് നിയന്ത്രണം വിട്ട് ബൈക്കിലും മരത്തിലുമിടിച്ച് മൂന്നുപേർ മരിച്ചു ബൈക്ക് യാത്രക്കാരൻ എട വണ്ണ സ്വദേശി ഫർഷാദും ബസിലുണ്ടായിരുന്ന ഗൂഢല്ലൂർ സ്വദേ ശികളായ ഫാത്തിമ സുബൈറ എന്നിവരുമാണ് മരിച്ചത് കുണ്ടു തോട് സി എൻ ജി റോഡിലെ വളവിൽ നിയന്ത്രണം വിട്ട ബസ് ബൈക്കിൽ വരികയായിരുന്ന ഫർഷാദിനെ ഇടിച്ച ശേഷം റോഡ രികിലെ മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു എറണാകുളത്തും ഹരിപ്പാട്ടും കെ എസ് ആർ ടി സിയുടെ വൈദ്യുതി ബസുകൾക്ക് ചാർജിങ് സംവിധാനം ഏർപ്പെടുത്തിയ തായി കോർപ്പറേഷൻ മാനേജിങ് ഡയറക്ടർ എം

കഴിഞ്ഞ് തിങ്കളാഴ്ച നിരത്തിലിറക്കിയ എട്ട് ബസുകളിൽ രണ്ടെണ്ണത്തിന്റെ ചാർജ് സർവീസിനിടെ തീർന്നിരുന്നു

പട്ടത്ത് ട്രഷറി ആസ്ഥാന മന്ദിര ത്തിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി കോഴിക്കോട്ട് മറ്റന്നാൾ പട്ടയമേള സംഘടിപ്പിക്കും കലക്ട്രേറ്റ് കോൺഫ്രൻസ് ഹാളിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മേള ഉദ്ഘാടനം ചെയ്യും